സംസ്ഥാന ഗവ

തോമസ് ഐസക്

ൾ ൽ ൾ ലാവ്ലിൻ കേസിൽ ഹൈക്കോടതി വിധിക്കെതിരായ നാല് അപ്പീലുകൾ സൂപ്രീംകോടതി ഫയലിൽ സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ മൂന്ന് പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐ നൽകിയ ഹർജിയും വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ കെ ജി രാജശേഖരൻനായർ ആർ ശിവദാസൻ കസ്തൂരിരംഗ അയ്യർ എന്നിവർ നൽകിയ ഹർജികളുമാണ് ഫയലിൽ സ്വീകരിച്ചത്

ഹൈക്കോടതിവിധി ചോദ്യം ചെയ്ത് മുൻ കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ നൽകിയ ൃഹർജിയും ഇതൊ ടൊപ്പം ഒന്നിച്ച് പരിഗണിക്കാമെന്നും കോടതി അറിയിച്ചു ബൊഫേഴ്സ് കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കിയ ഡൽഹി ഹൈക്കോടതി പിധി ചോദ്യം ചെയ്ത് സിബിഐ നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി

മുത്തലാഖ് ഓർഡിനൻസിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി തള്ളി ഓർഡിനൻസ് പുറപ്പെടുവിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞെന്നും പാർലമെന്റ് ശീതകാല സമ്മേളനം ആരം ഭിക്കാനിരിക്കയാണെന്നും ഹർജി തള്ളിയ ചീഫ് ജസ്റ്റിസ് അറി യിച്ചു സംസ്ഥാന ഗവ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കാരൃത്തിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി ഡോ തോമസ് ഐസക് അറിയിച്ചു ശമ്പള വിതരണം യഥാസമയം പൂർത്തിയാക്കുമെന്നും ഇന്ന് സമർപ്പിക്കുന്ന എല്ലാ ബില്ലുകളും പാസാക്കാൻ നിർദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ജില്ലാ ട്രഷറികളിലും ഡയറക്ടറേറ്റിലും പ്രത്യേക സ്പെൽ രൂപീകരി ക്കുമെന്നും മന്ത്രി പറഞ്ഞു ബില്ലുകൾ തിരുത്താൻ കഴിയാത്ത താണ് പ്രശ്നത്തിന് കാരണം നേരത്തെ സമ്മതപത്രം നൽകിയ വർ വിസമ്മതപത്രം നൽകുന്നതും വിസമ്മതപത്രം നൽകിയവർ സമ്മതപത്രം നൽകുന്നതും കാരണം ബില്ലുകളിൽ തിരുത്തൽ ആവശ്യമായി വരുന്നുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു സാലറി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് പ്രശന്ങ്ങൾ കാരണം സംസ്ഥാന ഗവ ജീവനക്കാർക്ക് ഇന്നും ശമ്പളം ലഭിക്കില്ലെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി കേരളപ്പിറവി ്ദിനത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജീവന ക്കാർക്ക് ശമ്പളം ലഭിക്കാത്തത് സംസ്ഥാനത്ത് ആദ്യ സംഭവമാ ണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി പ്രളയത്തിൽ ഒന്നിച്ചു നിന്നവരെ വേദനിപ്പിച്ച നടപടിയായിരുന്നു സാലറി ചലഞ്ചെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സാലറി ചലഞ്ചിന്റെ കാര്യത്തിൽ സുപ്രീംകോടതി വിധി ഗവൺമെന്റ് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ലെന്ന് അദ്ദേഹം ചോദി ച്ചു പ്രളയാനന്തര ദുരിതാശ്ചാസ നടപടികൾ നിലച്ചിരിക്കുകയാ ണ്

ഹൈക്കോ ടതിയുടെ മേൽനോട്ടത്തിൽ ശബരിമല സംഘർഷം അന്വേഷി ക്കണമെന്ന പൊതുതാത്പരൃ ഹർജിയുടെ പരിഗണനാ വേളയി ലാണ് കോടതി ഇക്കാരൃം നിരീക്ഷിച്ചത് ഈ വിഷയത്തിൽ ഭാഗ ഭാക്കാകാൻ കോടതിക്ക് ഉദ്ദേശ്യമില്ലെന്നും വൃക്തമാക്കിയ കോടതി കേസ് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് മാറ്റി ശബരിമലയിൽ കലാപത്തിന് വഴിമരുന്നിടുന്ന നടപടി ഗവൺമെന്റും ബിജെപിയും അവസാനിപ്പിക്കണമെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയും ഗവൺമെന്റും ശബരിമലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണ്ണ മാക്കുകയാണെന്നും ഗവൺമെന്റ് യുദ്ധപ്രഖ്യാപനം നടത്തുക യാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഭക്തർക്ക് സമാധാനപരമായും സ്വതന്ത്രമായും അയ്യപ്പ ദർശനത്തിന് അവ സരമൊരുക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ടെന്നും ചെന്നി ത്തല പറഞ്ഞു തീർത്ഥാടകർക്ക് പൊലീസും ഗവൺമെന്റും ഏർപ്പെടു ത്തുന്ന നിയന്ത്രണങ്ങളും നിരോധനങ്ങളും അവരുടെ വ്യക്തി സ്വാതന്ത്രൃത്തിൽ കൈകടത്തലാണ് ഭയമില്ലാതെ തീർത്ഥാടന ത്തിന് സൌകരൃമൊരുക്കുകയാണ് ഗവ

എന്നാൽ ഗവ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അസാധരണ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അയ്യപ്പ ഭക്തൻ ശിവദാസന്റെ മരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി നടത്തുന്ന ഹർത്താൽ അനാ വശ്യമാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെ ട്ടു ബലിദാനികളെ സൃഷ്ടിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്ന തെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആരോപിച്ചു ശിവദാ സന്റെ കൂടുംബത്തിന് പോലും പരാതിയില്ലെന്നും മന്ത്രി പറ ഞ്ഞു നിലയ്ക്കലിൽ കാണാതായ അയ്യപ്പ ഭക്തിന്റെ മരണത്തിനു പിന്നിൽ പൊലീസ് ആണെന്ന് പോസ്റ്റു ചെയ്യുകയും പ്രചരിപ്പി ക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകു മെന്ന് പൊലീസ് അറിയിച്ചു

ഈ സാഹചര്യത്തിൽ പൊലീസ് നടപടിക്കിടെ ശിവദാ സൻ മരിച്ചുവെന്ന് പറയുന്നത് തെറ്റും വ്യാജവുമായ വാർത്ത യാണെന്ന് പൊലീസ് വിശദീകരിച്ചു

അയോ ധ്യയിൽ രാമക്ഷേത്ര നിർമാണകാര്യവും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും ചർച്ചാ വിഷയമായെന്നാണ് റിപ്പോർട്ട്

സംഭവസ്ഥലത്തു നിന്നും ആയുധങ്ങളും സ്ഫോടക വസ്തു ക്കളും കണ്ടെടുത്തായി സൈനിക വക്താവ് ജമ്മുവിൽ അറി യിച്ചു

റാഞ്ചിയിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ കേരള ത്തിന് ആദ്യ സ്വർണം

നിലവിൽ ഹരിയാനയാണ് ചാമ്പ്യൻമാർ തിങ്കളാഴ്ച മേള സമാപിക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ പൂനെയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കിറങ്ങും

സീസണിലെ ആദ്യ മത്സരത്തിൽ അത്ല റ്റികോ ഡി കൊൽക്കത്തയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ചശേഷം ബ്ലാസ്റ്റേഴ്സ് തുടർന്നു നടന്ന മൂന്നു മത്സര ങ്ങളിൽ എതിരാളികളോട് സമനില വഴങ്ങുകയായിരുന്നു നില വിൽ പോയിന്റ് പട്ടികയിൽ ഏഴാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ്

മലബാർ സ്പെഷൽ പൊലീസിലെയും കേരളാ ആംഡ് പൊലീസിലെയും അംഗങ്ങളാണ് പരിശീലനം പൂർത്തിയാക്കിയത് പുതിയ പൊലീസ് പാഠ്യപദ്ധതി പ്രകാരം കമാന്റോ പരിശ്വീലനം നേടിയ സേനാംഗങ്ങളാണ് നാളെ പുറത്തിറങ്ങുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ മൂന്നു ദിവസം കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പ്രങ്കെടുക്കും തിങ്ക ളാഴ്ച രാവിലെ കണ്ണൂർ സർവ്വകലാശാല സിന്തറ്റിക് ട്രാക്ക് ഉദ്ഘാ ടനം ചെയ്യുന്ന മുഖ്യമന്ത്രി വൈകീട്ട് എൽ ഡി എഫ് റാലിയിലും സംബന്ധിക്കും ബാർകോഴ കേസിൽ വിജിലൻസ് അന്വേഷണ ഉത്തരവ് റദ്ദാ ക്കണമെന്ന കെഎം മാണിയുടെ ഹർജിയിൽ ഹൈക്കോടതി വി എസ് അച്യുതാനന്ദനെ കക്ഷി ചേർത്തു

സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് നിലപാടറിയാക്കാമെന്നും കോടതി പറഞ്ഞു കോഴിക്കോട്ട് അഖിലേന്ത്യാ തപാൽ ഫുട്ബോൾ ചാമ്പ്യൻഷി പ്പിന്റെ ഫൈനലിൽ ഇന്ന് കേരളം പശ്ചിമബംഗാളിനെ നേരിടും ഉച്ച കഴിഞ്ഞ് രണ്ടിന് മെഡിക്കൽ കോളെജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് മത്സരം മറുപടിയില്ലാത്ത മൂന്നു ഗോളിന് കർണാടകയെ തോൽപ്പിച്ചാണ് കേരളം ഫൈനലിലെത്തിയത് തമിഴ്നാടിനെയാണ് ബംഗാൾ പരാജയപ്പെടുത്തിയത് വൈകീട്ട് സമാപന ചടങ്ങിൽ മുൻ ഇന്ത്യൻ താരം യു ഷറഫലി മുഖ്യാതി ഥിയാകും

ജില്ലാ ലൈബ്രറി കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചലച്ചിത്ര അക്കാദമി ഓഫീസിൽ നിന്നാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു കണ്ണൂരിൽ നിന്ന് രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നവർക്ക് മേളയിൽ വെച്ച് ഡെലിഗേറ്റ് പാസും ഫെസ്റ്റ് കിറ്റും വിതരണം ചെയ്യും

അട്ടപ്പാടിയിൽ ആനമൂളി ചെക്ക് പോസ്റ്റിന് സമീപം മാവോ വാദികളുടെ പേരിൽ പോസ്റ്റർ കണ്ടെത്തിയ സംഭവത്തിൽ പൊലീസ് അന്വേഷണം ആരംഭിച്ചു ശബരിമലയിൽ യുവതി പ്രവേശനം തടയാൻ ശ്രമിക്കുന്നവരെ എതിർക്കാൻ ആഹ്വാനം ചെയ്താണ് മാവോവാദികൾ പോസ്റ്റർ പതിച്ചത്

പ്രമേയത്തെ പിന്തുണക്കാൻ സിപിഐഎം തീരുമാനിച്ചു സംസ്ഥാനത്ത് ബി ജെപി ഭരിക്കുന്ന ഏക നഗര സഭയാണ് പാലക്കാട്

ഇത്തരത്തിൽ കുടിശ്ശിക അടച്ചു തീർക്കുന്ന വരുടെ പലിശയും പിഴപലിശയും ഒഴിവാക്കിയതായി ബന്ധപ്പെ ട്ടവർ അറിയിച്ചു

മുഹമ്മദ് ഫൈസൽ എം പി യുടെ സാന്നിധൃത്തിൽ നടന്ന ചടങ്ങിൽ ലക്ഷദീപ് അഡ്മിനിസ്ട്രേറ്റർ ശ്രീ

എസ് എൻ എൽ അടുത്താഴ്ചയോടെ ഇടുക്കി ജില്ലയിലെ ഭൂരിപക്ഷം പ്രദേശങ്ങളിലും സേവനം വ്യാപിപ്പിക്കും

കത്തുന്ന സാധനങ്ങൾ അമിതമായി സ്റ്റോക്ക് ചെയ്തത് തീപിടുത്തത്തിന് കാരണമായെന്നാണ് നിഗമനം മുമ്പുണ്ടായ തീപിടുത്തം സംബ ന്ധിച്ച കാര്യങ്ങൾ അറിയിക്കാത്തതു നടപടിക്ക് കാരണമാണ് കമ്പനിയുടെ അനുമതി റദ്ദാക്കാതിരിക്കാൻ ഏഴു ദിവസത്തിനകം കാരണം കാണിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബ്യോർഡ് നോട്ടീസ് നൽകുക അതേസമയം അന്തരീക്ഷ വായുവിൽ കാർബൺ മോണോ ക്സൈഡിന്റെ അംശമില്ലെന്നാണ് ബോർഡ് കണ്ടെത്തിയത് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ കടങ്ങൾ ഉപേക്ഷിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ രാജൃത്തിന്റെ സമ്പദ് വൃവസ്ഥയുടെ നട്ടെല്ലായ കർഷകരുടെ കടങ്ങളും എഴുതി തള്ളണമെന്ന് എഫ് ഐ ടി